പോഷകാഹാര പദ്ധതി വിജയിപ്പിക്കുന്നതിലും സ്ത്രീകളുടെ പങ്ക് നിസ്തുലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രേമോദി

തിരുവനന്തപുരം ആറ്റുകാലിലെ പ്രശസ്തമായ പൊങ്കാല ഇന്ന്

രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ സൌരാഷ്ട്ര ഇന്ന് ബംഗാളിനെ നേരിടും

ന്യൂഡൽഹിയിൽ പുരസ്ക്കാര ജേതാക്കളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ സഹകരണമില്ലായിരുന്നു എങ്കിൽ വെളിയിട വിസ്സർജ്ജന മുക്ത രാഷ്ട്രമെന്ന പദവി നേടുന്നതിനും പോഷകാഹാര പദ്ധതി വിജയിപ്പിക്കുന്നതിനും സാധിക്കില്ലായിരുന്നുവെന്നും ശ്രീ

രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ശ്ാക്തീകരണത്തിന്റെ അടിസ്ഥാന ഘടകമാണ് വനിതകളുടെ വിദ്യാ്ഭ്യാസമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

നിതി ആയോഗ് ഇന്നലെ സംഘടിപ്പിച്ച വിമൻ ട്രാൻസ്ഫോർമിങ് ഇന്ത്യ അവാർഡ് ദാന ചടങ്ങിൽ അദ്ധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം സായുധസേനയുടെ ഒരു വാതിലും സ്ത്രീകൾക്ക് മുൻപിൽ അടയ്ക്കപ്പെടരുത് എന്ന നിലപാടാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി

യെസ് ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് റിസർവ് ബാങ്ക് നിക്ഷേപങ്ങളുടെ കാര്യത്തിലെ സുരക്ഷ ഉറപ്പു നൽകിയത് ഇത് സംബന്ധിച്ച് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അടിസ്ഥാന രഹിതമാണെന്ന് ബാങ്കിംഗ് റഗുലേറ്റർ ട്വീറ്റ് ചെയ്തു ബാങ്കുകളെ കൃത്യമായി നിരീക്ഷിക്കുകയും മാർഗ്ഗ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതിനാൽ നിക്ഷേപങ്ങൾ തീർത്തും സുരക്ഷിതമാണെന്ന് ആർ

ഐ പ്രസ്താവനയിൽ ഉറപ്പു നൽകിയിട്ടുണ്ട്

റാണയ്ക്കും കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും എതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് നടപടി

പതിനായിരത്തിലേറെ പേർക്ക് രോഗ ബാധ സ്ഥിരീകരിച്ചു

അതിനിടെ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ തീർത്ഥാടകരെ കൊറോണ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇവരെ ഇന്ത്യയിലേയ്ക്ക് തിരിച്ചു കൊണ്ടുവരാൻ നടപടി സ്വീകരിച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ്

ഇറാനിൽ കഴിയുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ കൊറോണ ബാധിച്ചിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രി അറിയിച്ചു

സൌദി അറേബ്യയിൽ അൽ ഖാത്തിഫ് പ്രവിശ്യയിലേയ്ക്കുള്ള വരവും പോക്കും ഗവൺമെന്റ് നിരോധിച്ചു രാജ്യത്ത് ഏറ്റവുമധികം കൊറോണബാധ റിപ്പോർട്ട് ചെയ്തത് ഖാത്തിഫിലാണ് ഇന്ത്യയിലും അതീവ ജാഗ്രത തുടരുകയാണ് പശ്ചിമബംഗാളിൽ സ്വകാര്യ നഴ്സിംഗ് ഹോമുകളിൽ കൊറോണ നിരീക്ഷണത്തിന് സംവിധാനം ഒരുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ആശുപത്രികൾ കൊറോണ പ്രതിരോധത്തിനായി സജ്ജമാക്കി

ഇവരിൽ മൂന്നു പേർ് ഇറ്റലിയിൽ നിന്ന് എത്തിയവരും രണ്ടു പേർ അവരുമായി സമ്പർക്കം പുലർത്തിൽ നാട്ടിലുള്ളവരുമാണ്

ഇവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ നിരീക്ഷണത്തിലാണ്

കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിലവിൽ ആറ് പേർ ഐസൊലേഷൻ വാർഡുകളിൽ നിരീക്ഷണത്തിലാണ്

ഇറ്റലിയിൽ നിന്നും പത്തനംതിട്ടയിൽ എത്തി കോവിഡ് സ്ഥിരീകരിച്ചവർ വന്ന വീട്ടിലെ മൂന്നുപേരെയും അയൽവാസികളായ രണ്ടുപേരെയുമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്

രോഗബാധിത രാജ്യങ്ങളിൽനിന്ന് വന്നവർ ജില്ലാ മെഡിക്കൽ ഓഫീസറുമായോ അടുത്തുള്ള ആരോഗ്യകേന്ദ്രവുമായോ ബന്ധപ്പെടണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ഇത്തരക്കാർക്കെതിരെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുളള കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് ആറിയിച്ചു

രാവിലെ ശുദ്ധപുണ്യാഹത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുക

തുടർന്ന് ഭക്തരുടെ അടുപ്പുകളിലേക്ക് അഗ്നി കൈമാറിയെത്തും

അതേസമയം കൊറോണയുടെ പശ്ചാത്തലത്തിൽ ചുമ പനി തുടങ്ങിയ രോഗലക്ഷണമുള്ളവർ പൊങ്കാലയിടുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു

ആർ ഭരദാജ് അന്തരിച്ചു

ഹൃദയാഘാതത്തെത്തുടർന്ന് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംസ്കാരം ഇന്ന് വൈകിട്ട് നിഗംബോധ് ഘട്ടിൽ നടക്കും

കോട്ടയം കടുത്തുരുത്തിക്ക് സമീപം നിയന്ത്രണം വ്യിട്ടു ഐബക്ക് വൈദ്യുത പോസ്റ്റിലും മതിലിലും ഇടിച്ച് ഇരവിമൃഗിൽക്ട്സ്ദേശി ഡിജോ മാഞ്ഞൂർ സ്വദേശി ജോമി എന്നിവരാണ് മരിച്ചത് ഇന്നലെ അർധരാത്രിയിലായിരുന്നു അപകടം ദേശീയപാതയിൽ മലപ്പുറകൃമേൽമുറി പൊടിയാട്ബസ്റ്റാൻഡിന് സമീപം നിയന്ത്രണം വിട്ട കാർഗ്ഗൂര്ത്തിലിടിച്ചാണ് പഴമള്ളൂർ സെയ്താലിക്കട്ടി ഫൈസി മരിച്ചത്

ഗുജറാത്ത് ആയിരുന്നു സൌരാഷ്ട്രയുടെ എതിരാളി

സിയെ വീഴ്ത്തി എ ടി

എസ്

ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് കൊൽക്കത്തയുടെ ജയം